പുരോഗമിക്കുന്നു

മുൻകൂർ ജാമ്യാപേക്ഷ ്ക്കോടതി തള്ളി

വർദ്ധന

കേരളത്തിൽ തുലാവർഷം ശക്തമാകുന്നു

നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട്

പുനഃരാരംഭിച്ചു

ആദ്യ ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ അഞ്ച് ശതമാനം വോട്ടാണ് രേഖപ്പെടുത്തിയത്

വോട്ടിംഗിനായി എത്തുന്ന ജനങ്ങൾ കൊവിഡ് മാനദൃണ്ണ്ട്ങൾ പാലിച്ച് മാസ്ക് ധരിക്കണമെന്നും സാമൂഹികൃ അകലം പാലിക്കണമെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുപിട്ടു

ശിവശങ്കർ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി ഇതിനെ തുടർന്ന് എം ശിവശങ്കറിനെ തിരുവനന്തപുരത്ത് എൻഫോഴ്സ്മെന്റ് വിഭാഗം കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരത്ത് ശിവശങ്കർ ചികിത്സയിൽ കഴിഞ്ഞ ആശുപത്രിയിലെത്തിയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്

കോവിഡിന്റെ ഭ്രീഷ്ണി ഒഴിഞ്ഞ ശേഷം സാധാരണ ആശുപത്രിയായി പ്രവർത്ത്കും ്തുടരും

ജയരാജനും കെ

പൊതുമുതൽ നശിപ്പിച്ച കേസിൽ നാശ നഷ്ടത്തിന്റെ ആനുപാതിക തുക ബോണ്ടായി കെട്ടിവെച്ചതിനെ തുടർന്നാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്

മൂന്നു മാസത്തിനിടെ രാജ്യത്ത് ഏറ്റവും കുറവ് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം ഇന്നലെ രേഖപ്പെടുത്തി

കൃത്യമായ പരിശോധനകളും മികച്ച ചികിത്സയും രോഗമുക്തി നിരക്ക് വർദ്ധിപ്പിച്ചതായി കേന്ദ്ര ആരോഗൃമന്ത്രാലയം അറിയിച്ചു

ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്

നേരത്തെ പിടിച്ച ഒരു മാസ്സ്തെ ശമ്പളം ഏപ്രിൽ ഒന്നിന് പി

ക്ഷ്ത് ജൂൺ ഒന്നുമുതൽ ഗഡുക്കളായി ജീവനക്കാർക്ക് പിൻവിലിക്കാം

ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സ്വർണ്ണക്കടത്ത് കൃഷ്ണദാസ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിന് ജാമ്യം നിഷേധിക്കുകയും അറസ്റ്റുചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അടിയന്തിരമായ രാജി വെക്കണമെന്ന് ബി ജെ

ദേശീയ നിർവാഹക സമിതി അംഗം പി

കൃഷ്ണദാസ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു

ഇതിന്റെ ഭാഗമായി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വിമാനങ്ങളും രണ്ട് രാജൃങ്ങൾ തമ്മിലുള്ള താൽക്കാലിക വ്യോമപാത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദ്ദീപ് സിങ് പുരി അറിയിച്ചു

എസ് ആർ ടി

എല്ലിൽ ഇന്ന് അബുദാബിയിൽ മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഏറ്റുമുട്ടും